ഉഭയകക്ഷി ബസ്പ്പ് സ്്ബന്ധിച്ച് ഇരുവരും സമഗ്രമായ ചർച്ച നടത്തിയെന്ന് ശ്രീ

രാജ്യത്തെ ന് എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആശംസകൾ നേർന്നു

സ്ഫോടനത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് മുഖ്യമന്ത്രി അമരേന്ദർ സിങ്ങ് ഉത്തരവിട്ടു

റഷ്യൻപ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഫോറത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത്

ജപ്പാൻ മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ പ്രധ്ന്ന്മ്ന്തിമാരുമായും മംഗോളിയൻ പ്രസിഡന്റുമായും പ്രധാനമന്ത്രി ഉഭയക്ക്ഷ്ടി ച്ചർച്ച നടത്തും

രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലെത്തിയത്

ഇന്ത്യ റഷ്യ സഹകരണം പു്തിയ തലത്തിൽ എത്തിക്കുകയായിരുന്നു ചർച്ചയുടെ ലക്ഷ്യമെന്ന് പിന്നീട് സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു വ്യാപാരം സുരക്ഷ പരിസ്ഥിതി സംരക്ഷണത്തിന് കൂട്ടായ പരിശ്രമം തുടങ്ങിയ വിഷയങ്ങളാണ് പ്രധാനമായും മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഏതൊരു രാജ്യത്തിന്റെയും ആഭ്യന്തര വിഷയങ്ങളിലുള്ള ബാഹ്യ ഇടപെടലിന് എതിരാണെന്ന് ഇരുരാഷ്ട്ര തലവൻമാരും വ്യക്തമാക്കി ജമ്മുകാശ്മീർ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടിനെ റഷ്യ പിന്തുണച്ചു കാശ്മീരിൽ ഇന്ത്യ കൈക്കൊണ്ട നടപടി ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു

ഇന്ത്യയുടെ ഗഗൻയാൻ ബഹിരാകാശ പദ്ധതിയ്ക്ക് എല്ലാ സഹായവും നൽകുമെന്നും ആണവ വിതരണ ഗ്രൂപ്പിൽ ഇന്ത്യയുടെ അംഗത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നതായും റഷ്യ അറിയിച്ചു

സമഗ്രമായ ചർച്ചയാണ് ഇരുവരും തമ്മിൽ നടന്നതെന്നും ഉഭയകക്ഷി ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തതായും ശ്രീ

മൂന്ന് ദിവസത്തെ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് ശ്രീ രാജ്നാഥ് സിംഗ് സീയോളിൽ എത്തിയത് ഇന്ത്യയും ദക്ഷിണ കൊറിയയും സ്വാഭാവിക പങ്കാളികളാണെന്ന് രാജ്യരക്ഷാമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു പ്രത്യേക നയതന്ത്ര പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ഭാവിയിൽ കൂട്ടുകെട്ട് ദൃഡമാക്കുന്നതിനും ദക്ഷിണ കൊറിയയുടെ നൂതന ദക്ഷിണ നയവും ഇന്ത്യയുടെ കിഴക്കൻ നയവും ശക്തമായ അടിത്തറപാകുമെന്ന് അദ്ദേഹം പറഞ്ഞു

ജമ്മു കശ്മീരിൽ നടപ്പാക്കാനാവുന്ന പുതിയ പരിഷ്ക്കൂർങ്ങളും രീതികളും പരിശോധിക്കുകയാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം സന്ദർശനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി ഡ്രേക്ട് ജീതേന്ദ്ര സിംഗിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് കശ്മീർ വികസന കാര്യങ്ങ്ങൾ ചർച്ച ചെയ്തു

ഒക്ടോബർ ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന് ആർ

ഐ ഇന്നലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു ഫിനാൻഷ്യൽ ബെഞ്ച് മാർക്ക് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏത് വിപണി പലിശ നിരക്കും ബാങ്കുകൾക്ക് സ്വീകരിക്കാമെന്ന് ആർ

ഐ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു

ഡി

രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം സഹായധനം സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചു

അസം ബീഹാർ മദ്ധ്യപ്രദേശ് തമിഴ്നാട് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ പോഷൺമാഹിന് ഇന്നലെ തുടക്കം കുറിച്ചു വനിതാശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഒരു മാസം നീളുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടപ്പാക്കുന്നത് സ്കൂൾതല പ്രചാരണ പരിപാടികളും സെമിനാറുകളും സംഘടിപ്പിക്കുക എന്നിവയാണ് പോഷൺ മാഹ് വഴി ചെയ്യുന്നത് കുഞ്ഞിന്റെ ആദ്യ ആയിരം ദിനങ്ങൾ വിളർച്ച വയറിളക്കം ശുചിത്വം പോഷകസമ്പുഷ്ടമായു ഭൂക്ഷണം എന്നീ പ്രധാന ഘടകങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വർഷുപ്പ്രോഷൺമാഹ് നടത്തുന്നത്

ക്രിക്കറ്റ് അസോസിയേഷന്റെ ഫണ്ട് ദൂരുപയോഗം ചെയ്തത് ശരിവെയ്ക്കുന്ന ബാങ്ക് അക്കൌണ്ടിന്റെ വിശദാംശങ്ങളും എൻഫോഴ്സ്മെന്റ് ഡയക്ട്രേറ്റിന് ലഭിച്ചിട്ടുണ്ട്

സദാശിവത്തിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്നലെ യാത്രയയപ്പ് നൽകി എയർപ്പോർട്ട് ടെക്നിക്കൽ ഏരിയയിൽ പോലീസിന്റെ പരേഡ് പരിശോധിച്ച് അഭിവാദ്യം സ്വീകരിച്ച ശേഷമാണ് അദ്ദേഹം ആഭ്യന്തര വിമാനത്താവളത്തിൽ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ ചീഫ് സെക്രട്ടറി ഡി ജി പി ജില്ലാ കളക്ടർ ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരുന്നു നിയുക്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് രാവിലെ തലസ്ഥാനത്തെത്തും നാളെ കേരള ഗവർണ്ണറായി അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും

രാജ്യത്തെ എല്ലാ അധ്യാപകർക്കും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആശംസകൾ നേർന്നു

ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയും അദ്ധ്യാപകനും പണ്ഡിതനുമായ ഡോ സർവ്വേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മവാർഷിക ദിനമായ സെപ്റ്റംബർ അഞ്ച് ആണ് എല്ലാ വർഷവും ദേശീയ അദ്ധ്യാപക ദിനമായി ആചരിക്കുന്നത് സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അദ്ധ്യാപകരുടെ പങ്ക് വിലമതിക്കാനാവാത്തതാണ് ദേശീയ അദ്ധ്യാപകദിനത്തോടനുബന്ധിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മികച്ച അദ്ധ്യാപകർക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ അവാർഡുകൾ വിതരണം ചെയ്യും ഇന്നലെ ദേശീയ അദ്ധ്യാപക അവാർഡ് ജേതാക്ക്ളുമായി കേന്ദ്ര മനുഷ്യ വിഭവശേഷി വികസനമന്ത്രി രമേഷ് പൊഖ്മീയ്ട്ക്ൽ നിഷാങ്ക് ആശയവിനിമയം നടത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണ്ടി

സിബിഐ യിൽ പ്രവർത്തിക്കുന്ന കുറ്റാന്വേഷകർ സാങ്കേതിക ഫോറൻസിക് വിദഗ്ദ്ധർ പ്രോസിക്യൂട്ടർ തുടങ്ങിയവർ സാങ്കേതിക വിഷയങ്ങളിൽ ബോധവാന്മാരായിരിക്കണമെന്ന് ന്യൂഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്ത് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ

സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ നിയമപാലകർക്ക് നേരെ ഉയർത്തുന്നത് അതുകൊണ്ടു തന്നെ അത് നേരിടാനുള്ള ശേഷിയും ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു

സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വസ്തുതകൾ തെറ്റായി അവതരിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതുവഴി ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണെന്നും ഇത്തരം നടപടികൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗളൂരുവിൽ നടന്ന ലോക തെരഞ്ഞെടുപ്പ് സമിതികളുടെ നാലാമത് പൊതുസഭാ സമ്മേളന സമാപന യോഗത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയുയിരുന്നു ശ്രീ

സമ്മേളനത്തിന്റെ മൂന്നാം ദിവസമായ ഇന്നലെ ശാസ്ത്രസാങ്കേതിക കമ്മിറ്റിയുടെ യോഗം ചേർന്നതായി ഔദ്യോഗിക വാർത്താകുറിപ്പിൽ പറയുന്നു വരൾച്ചയെ നേരിടാൻവേണ്ട തന്ത്രപരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇന്നലെ കമ്മിറ്റി ചർച്ച ചെയ്തു

പരിക്കേറ്റവരെ അമേരീക്കൻ തീരസേനയും ബ്രിട്ടന്റെ റോയൽനേവിയും വ്യോമമാർഗ്ഗം രക്ഷപ്പെടുത്തുകയും അവശ്യവസ്തുക്കൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഗ്രാൻഡ് ബഹമയിലും അബാക്കോ ദ്വീപിലുമുള്ള എഴുപതിനായിരത്തോളം ജനങ്ങൾക്ക് അടിയന്തര സഹായം ആവശ്യമാണെന്ന് യു